സമൂഹത്തിലെ പാർശ്വവത്കരിക്കപ്പെട്ട വർക്ക് തിരിച്ചറിയൽ രേഖയാണ് ആധാറെന്ന് കോടതി

സ്വകാരൃ കമ്പനികൾക്ക് ആധാർ വിവരങ്ങൾ കൈമാറുന്ന വകുപ്പ് സുപ്രീംകോടതി റദ്ദാക്കി

ആധാറിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികൾ പരിഗണിച്ച അഞ്ചംഗ ഭരണ ഘടനാ ബെഞ്ചിലെ ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര ജസ്റ്റിസ് ഖാൻവിൽക്കർ എന്നിവർക്കു വേണ്ടി ജസ്റ്റിസ് എ കെ സിക്രിയാണ് വിധ്യി പ്രസ്താവിച്ചത് ആധാറിനു വേണ്ടി കുറഞ്ഞ വിവര്ങ്ങൾ മാത്രമാണ് ശേഖരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു

എന്നാൽ സിബിഎസ്ഇ നീറ്റ് യുജിസി പരീക്ഷ കൾക്ക് ആധാർ നിർബന്ധമാക്കാൻ ആവില്ലെന്നും കോടതി പറഞ്ഞു

കുട്ടികളെ ആധാറിൽ ഉൾപ്പെടുത്തുന്നതിന് മാതാ പിതാക്കളുടെ ്സമ്മതം നിർബന്ധമാണ് ബാങ്ക് അക്കൌണ്ട് തുടങ്ങുന്നതിനും മൊബൈൽ കണക്ഷൻ എടുക്കുന്നതിനും ആധാർ നിർബന്ധമില്ലെന്നും കോടതി പറഞ്ഞു സാമൂഹ്യ ക്ഷേമ പദ്ധതികളും ആധാറില്ലാത്തിന്റെ പേരിൽ നിഷേധിക്കരുതെന്നും കോടതി പറഞ്ഞു എന്നാൽ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കു ന്നതിനും പാൻ കാർഡ് എടുക്കുന്നതിനും ആധാർ നിർബന്ധമാണ് ആധാർ ഇല്ലാത്തതിന്റെ പേരിൽ ഒരു വ്യക്തിയുടെയും അവകാശങ്ങൾ നിഷേധിക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു

അനധികൃത കുടിയേറ്റക്കാർക്ക് ആധാർ നൽകരുതെന്നും കോടതി പറഞ്ഞു

ദേശീയ സുരക്ഷയെ ബാധിക്കുന്നതാണെങ്കിൽ ജോയിന്റ് സെക്രട്ടറി പദവിയിലെ ഉദ്യോഗസ്ഥന്റെ ഇടപെടലിലൂടെ ആധാർ വിവരങ്ങൾ കൈമാറാമെന്ന വൃവസ്ഥയും കോടതി റദ്ദാക്കിയിട്ടുണ്ട് ആധാറിനായി ശേഖരിക്കുന്ന വിവരങ്ങൾ സംരക്ഷിക്കാൻ നിയമം വേണമെന്നും കോടതി പറഞ്ഞു ആധാർ വിവരങ്ങൾ സ്ഥകാര്യ വ്യക്തികൾക്ക് കൈമാറുന്നത് റദ്ദാക്കിയ സൂപ്രീംകോടതി വിധി കോൺഗ്രസ് സ്വാഗതം ചെയ്തു

ആധാർ വേണ്ട എന്നാരും പറയുന്നില്ലെന്നും ഉപയോഗത്തിന് നിയന്ത്രണം വേണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അഭിപ്രായപ്പെട്ടു ആധാറിന്റെ കാര്യത്തിൽ വിവര സംരക്ഷണ നിയമം വേണമെന്നും ശശി തരൂർ പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ഗവ

മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി കേരളത്തിന്റെ പുനർ നിർമാണത്തിന് നൽകുന്ന കേന്ദ്രസഹായം സംബന്ധിച്ചായിരുന്നു കൂടിക്കാഴ്ച സംസ്ഥാനത്ത് സ്ഥകാര്യ കമ്പനികൾക്കു ബ്രൂവറി അനുവദിച്ചതിൽ വൻ അഴിമതി നടന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു കൊച്ചിയിൽ ഇതിനായി കിൻഫ്രയുടെ പത്തേക്കർ ഭൂമി വിട്ടു നൽകിയതായി അദ്ദേഹം തിരുവനന്ത് പുരത്ത് വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി ഡിസ്റ്റിലറിയും മൂന്നു ബ്രൂവറിയും രഹസ്യമായി അനുവദിച്ചതിൽ കോടികളുടെ ക്രമക്കേടാണ് നടന്നത്

മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് സാലറി ചാലഞ്ചല്ല ബ്രൂവറി ചാലഞ്ചാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു സർജിക്കൽ സ്ട്രൈക്കിന്റെ രണ്ടാം വാർഷിക ത്തോടനുബന്ധിച്ച് രാജ്യത്ത് പരാക്രം പർവ് ആചരണം മറ്റന്നാൾ ആരംഭിക്കും

ഇന്ത്യ ഗേറ്റിൽ മറ്റന്നാൾ നടക്കുന്ന പരിപാടിയിൽ രാജ്യരക്ഷാമന്ത്രി നിർമല സീതാരാമൻ പങ്കെടുക്കും സായുധ സേനയുടെ ധീരത പ്രദർശിപ്പിക്കുന്ന ചലച്ചിത്രങ്ങളും ഫോട്ടോകളും പരിപാടിയിൽ പ്രദർശിപ്പിക്കും ജമ്മുകശ്മിരിൽ ഭീകരവാദികളിൽ നിന്നും പിടിച്ചെടുത്ത ആയുധങ്ങൾ ആർട്ടിലറി ഗൺ ഉൾപ്പെടെ സൈനിക ഉപകരണങ്ങൾ വിദ്യാർത്ഥികൾ സൈനികർക്ക് അയച്ച കത്തുകൾ തുടങ്ങിയവയും പ്രദർശിപ്പിക്കും പരാക്രം പർവിന്റെ ഭാഗമായി പ്രത്യേക സംഗീത വിരുന്നും അരങ്ങേറും

തെരഞ്ഞെടുപ്പ് നടക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലെയും പാർട്ടി നിലപാട് യോഗത്തിൽ ചർച്ചയാകും വയനാട് പൂക്കോട് വെറ്ററിനറി സർവ്വകലാ ശാലയിൽ മാവോയിസ്റ്റ് സംഘം എത്തിയെന്ന സംശയത്തെ തുടർന്ന് പൊലീസ് പരിശോധന നടത്തി

പൂക്കോടിനു സമീപം സുഗന്ധഗിരിയിൽ കഴിഞ്ഞാഴ്ച മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീ കരിച്ചിരുന്നു നിർമാണ പ്രവർത്തനങ്ങൾക്ക് കരാർ നൽകുന്ന കാര്യത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഗുരുതര അനാസ്ഥ ഉണ്ടാകുന്നതായി മന്ത്രി ജി

മണ്ണൂത്തി വടക്കഞ്ചേരി ദേശീയപാതയുടെ പണി പൂർത്തിയാ വാത്തതിന്റെ പ്രധാന കാരണം ഈ അലംഭാവമാണെന്ന് മന്ത്രി തൃശൂരിൽ വ്യക്തമാക്കി രാജ്യത്തെ ഏറ്റവും വലിയ ടൂറിസം മേളയായ കേരള ട്രാവൽ മാർട്ടിന്റെ പത്താം പതിപ്പിന് നാളെ കൊച്ചിയിൽ തുടക്കമാവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

ഏഷ്യാക്കപ്പ് ക്രിക്കറ്റ് സൂപ്പർ ഫോറിലെ അവസാന മത്സരത്തിൽ പാകിസ്താൻ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും

ഇന്നലെ ഇന്ത്യ അഫ്ഗാനിസ്താൻ മത്സരം സമനിലയിൽ കലാശിച്ചിരുന്നു കണ്ണൂർ വിമാനത്താവളത്തിന്റെ സിഗ്നൽ സംവിധാനം ഉൾപ്പെടെയുള്ളവയുടെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിന് എയർ ഇന്തൃയുടെ വിമാനം രാത്രിയിൽ പരീക്ഷണ പറക്കൽ നടത്തും

കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് വിമാനങ്ങൾ പകൽ സമയം നടത്തിയ പരീക്ഷണ പറക്കൽ വിജയകര് മായിരുന്നു കന്യാസ്ത്രീയുടെ പീഡന പരാതിയിൽ മുൻ ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ അനുബന്ധ കേസുകൾ കോട്ടയം ജില്ലാ ക്രൈം പ്രബ്രാഞ്ച് അന്വേഷിക്കും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചതും കന്യാസ്ത്രീയുടെ ചിത്രം പ്രസിദ്ധീക രിച്ചതുമായ കേസുകളാണ് ക്രൈം ബ്രാഞ്ചിന് കൈമാറിയത്

കണ്ണൂർ പിണറായിയിൽ ഒരു വീട്ടിലെ നാലു പേർ ദുരൂഹസാഹചരൃത്തിൽ മരിച്ച കേസ് തുടരന്വേഷ ണത്തിനായി ക്രൈംബ്രാഞ്ചിന് കൈമാറി പൊലീസ് കുറ്റപത്രം സമർപ്പിച്ച മൂന്നു കേസുകളാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്

കൊലപാതകങ്ങൾക്കു പിന്നിൽ മറ്റൊരാളാണെന്ന് ആരോപിക്കുന്ന സൌമൃയുടെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവന്ന സാഹചര്യത്തിലാണ് കേസ് ക്രൈം ബ്രാഞ്ചിന് കൈമാറി ഡിജിപി ഉത്തരവിറക്കിയത്

അടുത്തമാസം കോഴിക്കോട്ട് സിറ്റിംഗ് നടത്താനും കമ്മീഷൻ അംഗം പി മോഹൻദാസ് ഉത്തരവിട്ടു ഇതുവരെ എടുത്ത പുനരധിവാസ നട്പടിയെ കുറിച്ചും കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്

കണ്ണൂർ ജില്ലയിൽ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കു നേരെ വ്യാപകമായ അക്രമം നടക്കുകയാണെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡണ്ട് സതീശൻ പാച്ചേനി പറഞ്ഞു അക്രമത്തിനു പിന്നിൽ സിപിഐഎം ആണെന്ന് അദ്ദേഹം കണ്ണൂരിൽ ആരോപിച്ചു അക്രമത്തി നെതിരെ അടുത്തമാസം മൂന്നിന് കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു

സംസ്ഥാനത്തെ ആദ്യ പൈതൃക വി ത്ത് ഗ്രാമമായി പ്രഖ്യാപിച്ച പിലിക്കോടിനുള്ള നാടൻ നെല്ലിനങ്ങ ളുടെ രണ്ടാംഘട്ട വിത്ത് വിതരണ ഉദ്ഘാടനവും ചടങ്ങിൽ നട ക്കും കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ നെല്ല് ജനിതക ശേഖര പാടം കർഷകർക്കും കൃഷി ഉദ്യോഗസ്ഥർക്കും നേരിട്ട് കാണു ന്നതിനും വിലയിരുത്തുന്നതിനും അവസരം ലഭിക്കും